പിവിധ രംഗങ്ങളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇന്ത്യയും ദക്ഷിണകൊറിയയും നാലു കരാറുകളിൽ ഒപ്പു വച്ചു തന്ത്രപരമായ പങ്കാളിത്തും ശക്തമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

വടക്ക് കിഴക്കൻ മേഖലയിൽ തൊഴിലവസരം വർദ്ധിപ്പിക്കുന്നതിന് ഉയർന്ന പരിഗണന നൽകണമെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ്

കേരളത്തിൽ കാലവർഷം ശക്തം മഴക്കെടുതികൾ വ്യാപകം അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു

ലോകകപ്പ് ഫുട്ബോൾ ആദ്യസെമിയിൽ ഇന്ന് ഫ്രാൻസ് ബെൽജിയത്തെ നേരിടും

ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് മൂൺ ജെ ഇന്നും തമ്മിൽ നടന്ന പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകളിൽ ഒപ്പിട്ടത് കൂടുതൽ വിവരങ്ങളുമായി സുവർണ വോയിസ് മേക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ദക്ഷിണ കൊറിയയുടെ പങ്കാളിത്തം മൂലം രാജ്യത്ത് തൊഴിലവസരങ്ങൾ വൻ തോതിൽ വർധിച്ചതായി ചർച്ചകൾക്ക് ശേഷം നടന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കൊറിയൻ കമ്പനികളുടെ പങ്കാളിത്തം ഇന്ത്യയിലെ ഓരോ കുടുംബത്തിലും ഓരോ വ്യക്തിയിലും പ്രതിഫലിക്കുന്നു കൊറിയൻ കമ്പനികളുടെ പ്രതിബദ്ധത അനുകരണിയമാണ്

മേഖലയിൽ ചരിത്രപരമായ മാറ്റം ാക്കാനും മൂണിന് കഴിഞ്ഞു

ഇന്ത്യയും ദക്ഷിണ കൊറിയയും കൂടിയാലോചനകൾ തുടരുമെന്നും ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി

മേഖലയിൽ സമാധാനം നിലനിർത്താൻ ഇരു രാജ്യങ്ങളും പ്രയത്നിക്കും

സമ്മേളനം സുഗമമായി നടക്കുന്നത് ഉറപ്പാക്കാൻ വിവിധ കക്ഷികളുടെ സഹകരണം തേടി ഗവൺമെന്റാണ് യോഗം വിളിച്ചത് ഇതേ ആവശ്യം മുൻ നിർത്തി ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജനും അന്ന് സർവ്വകക്ഷിയോഗം വിളിച്ചിട്ടു ്

ലോക്സഭ പാസാക്കിയ മുത്തലാഖ് ബിൽ ഇനി രാജ്യസഭ അംഗീകരിക്കേ തു ് മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്കായുള്ള ദേശീയ കമ്മിഷന് ഭരണഘടനാ പദവി നൽകാൻ നിർദ്ദേശിക്കുന്ന ബിൽ ഗവൺമെന്റിന്റെ പ്രധാന പരിഗണന വിഷയമാണ്

ജനാധിപത്യത്തിന്റെ അന്തസ്സ് നിലനിർത്താൻ കൂട്ടായ ഉത്തരവാദിത്തമാണുള്ളതെന്ന് സ്പീക്കർ പറഞ്ഞു പാർലമെന്റിന്റെയും ജനാധിപത്യത്തിന്റെയും പ്രതിഛായ കളങ്കപ്പെടാതെ സൂക്ഷിക്കണം എല്ലാ ഭിന്നതകളും സഭയ്ക്കുള്ളിൽ ചർച്ച ചെയ്ത് തീർപ്പാക്കാൻ ശ്രമിക്കണമെന്ന് ശ്രീമതി സുമിത്ര മഹാജൻ അഭ്യർത്ഥിച്ചു

മേഖലയിൽ ആറ് ഭീകരർ ഒളിച്ചു കഴിയുന്നു ന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തെരച്ചിലിനിടയിലാണ് ഏറ്റുമുട്ടലു ായത് ര ് സൈനികർക്ക് പരിക്കേറ്റു കുന്ദാലൻ ഗ്രാമം സൈനൃം വളഞ്ഞിരിക്കുകയാണ്

സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ അനുകൂലമായ സാഹചരൃം സൃഷ്ടിക്കണം മേഖല നിക്ഷേപാനുകൂലമാക്കണമെന്ന ധാരണ പ്രചരിക്കണമെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് നിർദ്ദേശിച്ചു

കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായാണ് എല്ലാവരെയും വിവിധ ഘട്ടങ്ങളിലായി പുറത്തെത്തിച്ചത്

ഇന്ന് രാവിലെ ആരംഭിച്ച അവസാനഘട്ട രക്ഷാ ദൌത്യത്തിൽ ആദ്യം മൂന്ന് കുട്ടികളെ പുറത്തെത്തിച്ചിരുന്നു

രക്ഷാ പ്രവർത്തനത്തിനിടെ തായ്ലന്റ് നേവിയിലെ ഒരു ഉദ്യോഗസ്ഥൻ മരിച്ചിരുന്നു

വടക്കൻ കേരളത്തിലാണ് മഴക്കെടുതി രൂക്ഷം വയനാട് എറണാകുളം കോട്ടയം ജില്ലകളിൽ ശക്തമായ മഴയു ായി പല പ്രദേശങ്ങളിലും ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ മലയോര യാത്ര ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടു ് കോഴിക്കോട്ടെ കരിഞ്ചോല മലയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടു ്

തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളുടെ കരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ഇരു എറണാകുളം ജില്ലാ കളക്ടർ അറിയിച്ചു കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ തീരപ്രദേശ നിവാസികൾ മുൻകരുതൽ എടുക്കണം

ഒ ചാരക്കേസിൽ മുൻ ശാസ്ത്രജ്ഞൻ ഡോ നമ്പി നാരായണന് നഷ്ടപരിഹാരം നൽകണമെന്ന് സുപ്രീംകോടതി ചാരക്കേസ് അന്വേഷിച്ച മുൻ പൊലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നമ്പി നാരായണൻ നൽകിയ ഹർജിയിൽ വാദം കേൾക്കവെയാണ് കോടതിയുടെ വിശദീകരണം സംശയത്തിൻെറ പേരിലാണ് ഉന്നത പദവിയിലിരുന്ന ശാസ്ത്രജ്ഞനെ പൊലീസ് അറസ്റ്റു ചെയ്തത് അതിനാൽ അദ്ദേഹത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകേ തു െ ന്നും ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ സുപ്രീംകോടതി ബെഞ്ച് നിരീക്ഷിച്ചു

ശക്തരായ ര ു ടീമുകളിൽ ആരാണ് ഫൈനലിലെത്തുക എന്നറിയാൻ മണിക്കൂറുകൾ മാത്രം

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സംവാദത്തിന്റെ തത്സമയ സംപ്രേക്ഷണം കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കും എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രമാണ് സംവാദത്തിന്റെ സംപ്രേഷണം കർഷകർക്കായി ഒരുക്കുന്നത്

ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ ഭരണഘടനാ ബഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്

ശ്രീ രാമായണ എക്സ്പ്രസ്സ് എന്ന പേരിൽ സ്പെഷ്യൽ ടൂറിസ്റ്റ് ട്രെയിൻ സർവ്വീസ് ആരംഭിക്കും

അഫ്ഗാൻ സുരക്ഷാ സേനാംഗങ്ങൾ സഞ്ചരിച്ച വാഹനത്തിന് സമീപമായിരുന്നു സ്ഫോടനം